കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദിദിന സന്ദർശനാർത്ഥം ഇന്ന് തമിഴ്നാട്ടിൽ

കോവിഡ് വീക്സിൻ വിതരണം സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ അദ്ധ്യക്ഷതയിൽ ഉന്നതതലയോഗം

ഇന്ത്യൻ സൂപ്പർലീഗ് എഴാം സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തോൽവിയോടെ കേരള തുടക്കം

പി ഫൈനൽ സിംഗിൾസിൽ നോവാക്ക് ജോക്കോവിച്ച് സെമിയിൽ

രണ്ട് ദിവസത്തെ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർചലായി അഭിസംബോധന ചെയ്യും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ട് വർഷം കൊണ്ട് പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം

ഉന്നത് ഭാരത് അഭിയാന്റെ പുരോഗതി സംബന്ധിച്ച് സംസ്ഥാന ട്ടത്ലത്തിൽ പഠനം നടത്തണമെന്നും ശ്രീ പൊഖ്രിയാൽ നിർദ്ദേശിച്ചു

ജമ്മുകാശ്മീരിലെ പ്രാദേശിക ജനാധിപത്യ നടപടികൾക്ക് തുരങ്കം വയ്ക്കാനുള്ള ശ്രമത്തൈ ഇതിലൂടെ പരാജയപ്പെടുത്താനായെന്നും അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു

ചെന്നൈ മെട്രോ റെയിലിന്റെ രണ്ടാം ഘട്ടത്തിനും ശ്രീ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടെ ഷെറിങും ചേർന്ന് വെർചൽ കോൺഫറൻസിങ്ങിലു്ടെ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഭൂട്ടാന്റെ ആവശ്യങ്ങൾക്ക് ഇന്ത്യാഎപ്പോഴും പ്രഥമ പരിഗണനയാണ് നൽകി വരുന്നതെന്ന് പ്രധാനമിത്തി നരേന്ദ്രമോദി പറഞ്ഞു

തുറമുഖങ്ങളിൽ ജോലിചെയ്യുന്നവർ നിർമ്മാണ തൊഴിലാളികൾ ഖനി തൊഴിലാളികൾ അന്തർസംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾ കരാർ തൊഴിലാളികൾ മാധ്യമപ്രവർത്തകർ ശബ്ദ് ദൃശ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവരുടെ സുരക്ഷ ആരോഗ്യം ജോലി സാഹചര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കരട് നിയമത്തിൽ ഇടംപിടിച്ചിട്ടുണ്ട്

ആരോഗ്യപ്രവർത്തകരുടെ ലഭ്യത ശീതീകരണ സംവിധാനം വാക്സിൻ നൽകേണ്ടവരുടെ മുൻഗണനാക്രമം തുടങ്ങിയവയും ചർച്ചാവിഷയമായി

ആറിന്റെ സഹകരണത്തോടെ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം ഹരിയാനയിൽ ആരംഭിച്ചു

അവശ്യ സേവനങ്ങൾ കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നഗരത്തിൽ പൊതുഗതാഗതം ഉണ്ടായിരിക്കില്ല വ്യോമ ട്രെയിൻ മാർഗം എത്തുന്നവർ കൃത്യമായ രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ പ്രവേശനം അനുവദിക്കൂ

ഏറ്റവും കൂടുതൽ രോഗികളുള്ള അമേരിക്കയിൽ ഇന്നലെ മാത്രം രണ്ട് ലക്ഷം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

തുടർച്ചയായ അഞ്ചാം സീസണിലും ഉദ്ഘാടന മത്സരത്തിനിറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല

അലക്സാണ്ടർ ്ര്യ്പ്പരോവിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജോക്കോവിച്ച് സെമിയിലെത്തിയത്

ന്രേത്തെ നിലവിലെ ചാമ്പ്യൻ സ്റ്റെഫാനോ സിറ്റ്സിപാസിനെ പരാജയപ്പെടുത്തി റാഫേൽ നദാലും സെമിയിലെത്തിയിരുന്നു